ഇന്ത്യയുടെ ആഭ്യന്തരകാര്യത്തിൽ പാകിസ്ഥാൻ നടത്തുന്ന പ്രസ്താവനകൾ നിരുത്തരവാദപരമെന്ന് ഇന്ത്യ കാശ്മീരിന് മേൽ പാകിസ്ഥാന് യാതൊരു അവകാശവുമില്ലെന്ന് പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ്

കള്ളപ്പണ ഇടപാട് കേസിൽ മുൻകേന്ദ്രമന്ത്രി പി

ഇന്ത്യയിൽ അക്രമം ഉ ാക്കാനും ജിഹാദിനും ആഹ്വാനം ചെയ്തുകൊ ുള്ള പ്രസ്തവനകളാണ് ാകുന്നതെന്ന് വിദേശകാരൃ വക്താവ് രവീഷ്കുമാർ ഉ ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു കൂടുതൽ വിവരങ്ങളുമായി കരോൾ യാഥാർത്ഥ്യവുമായി ബന്ധമില്ലാത്ത രീതിയിൽ സാഹചര്യങ്ങളെ പെരുപ്പിച്ച് കാട്ടുകയാണ് പാകിസ്ഥാൻ ചെയ്യുന്നതെന്ന് ഇന്ത്യ കുറ്റപ്പെടുത്തി കള്ളവും ചതിയും മുഖമുദ്രയാക്കിയ പാകിസ്ഥാന്റെ നടപടികൾ ലോകരാജ്യങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു

ഒരു സാധാരണ അയൽരാജ്യത്തെപ്പോലെ പെരുമാറാൻ പാകിസ്ഥാൻ തയ്യാറാകണം അയൽക്കാരായ രാജ്യങ്ങൾ തമ്മിൽ വ്യാപാരബന്ധങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്യാറ് അല്ലാതെ ഭീകരത പ്രോത്സാഹിപ്പിക്കുകയും നുഴഞ്ഞു കയറ്റക്കാരെ സഹായിക്കുകയുമല്ല ചെയ്യേ ത് കാശ്മീരിലെ ആശുപത്രികളിൽ മരുന്നുകൾക്കൊ മറ്റെന്തെങ്കിലും അവശ്യപ്പ്പ്പ്തുക്കൾക്കൊ ദൌർലഭ്യമില്ലെന്ന് അദ്ദേഹം പറഞ്ഞു

കാശ്മീരിൽ സ്ഥിതിഗതികൾ സാവധ്യാനും മെച്ചപ്പെട്ട് വരികയാണെന്നും അദ്ദേഹം പറഞ്ഞു

എസ് കോൺഗ്രസ് റിപ്പോർട്ട് ഇമ്രാൻഖാൻ ഗവൺമെന്റിന് മേൽ പാകിസ്ഥാൻ സൈന്യത്തിന്റെ സ്വാധീനം തുടരുന്നതായും സമിതി വ്യക്തമാക്കി പാകിസ്ഥാന്റെ വിദേശ സുരക്ഷാ നയങ്ങളിൽ നിർണ്ണായക ശക്തിയായി സൈന്യം തുടരുകയാണെന്നും സമിതി വ്യക്തമാക്കി നവാസ് ഷെറീഷ് ഗവൺമെന്റിനെ താഴെയിറക്കാൻ സൈന്യം ആഭ്യന്തര രാഷ്ട്രീയത്തിൽ ഇടപെടുകയും ഭരണത്തിൽ മുൻപരിചയമില്ലാത്ത ഇമ്രാൻഖാനെ അധികാരത്തിലേറാൻ സഹായിരിക്കുകയും ചെയ്തതായി കോൺഗ്രഷണൽ റിസർച്ച് സർവ്വീസ് തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പറയുന്നു സൈനൃവും നിയമവ്യവസ്ഥയും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടും ഇമ്രാഖാന്റെ പാർട്ടിയ്ക്ക് അനുകൂലമായി പ്രവർത്തിച്ചതായും റിപ്പോർട്ട് ിക്കാട്ടുന്നു

ക്രിാശ്മീർ എല്ലാകാലത്തും ഇന്തൃയോടൊപ്പമായിരുന്നു

പാക് അധീന കാശ്മീരിലെ അതിക്രമങ്ങളും മനുഷ്യാവകാശ ലംഘനങ്ങളും തടയുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അദ്ദേഹം പാകിസ്ഥാനെ ഉപദേശിച്ചു

പൂഞ്ച് ജില്ലയിലെ ജനവാസ മേഖലകളും ഇന്ത്യൻ പോസ്റ്ററുകളും ലക്ഷ്യമിട്ടാണ് പാകിസ്ഥാൻ സേന വെടിയുതിർത്ത്

സംഭവത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല ഇന്ത്യൻ സേന ശക്തമായി തിരിച്ചടിച്ചിട്ടു ്

പ്രമേഹം രക്തസമ്മർദ്ദം തുടങ്ങിയ രോഗങ്ങൾ കുറവു ഇന്ത്യയിൽ വർദ്ധിച്ചു വരുകയാണെന്നും ജീവിത ശൈലിയിൽ ചെറിയ രീതിയിലുള്ള മാറ്റം വരുത്തിയാൽ ഈ രോഗങ്ങൾ തടയാനാകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

ദിവ്യാംഗയായ പാരാ അത്ലറ്റ് ദീപാ മാലികിന് രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്ക്കാരം സമ്മാനിച്ചു ഫൂട്ബോൾ താരം ഗുർപ്രീത് സിംഗ് സന്ധു ഹോക്കി താരം ചിൻഗ്ലൻസെന കൻഗുജാം സ്പ്രിൻർ മുഹമ്മദ് അനസ് ഹെപ്റ്റാതലൺ താരം സ്വപ്നാ വർമ്മ ഷൂട്ടിംഗ് താരം അഞ്ജും മൌദ്ഗിൽ എന്നിവർക്ക് അർജ്ജുനാ അവാർഡും രാഷ്ട്രപതി സമ്മാനിച്ചു

സ്വകാര്യമേഖയിലെ പലരും വാങ്ങാൻ താൽപര്യം പ്രകടിപ്പിച്ചിട്ടു കുറഞ്ഞ സമയത്തിനുള്ളിൽ ഏറ്റവും ഗുണകരമായി സ്വകാരൃവത്കരണം പൂർത്തിയാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വ്യോമയാന മേഖലയിലെ തൊഴിൽ അന്വേഷകർക്കും തൊഴിൽ ദായകർക്കും വേ ി തയ്യാറാക്കിയ വെബ്പോർട്ടലിന്റെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു

രാജ്യത്തെ വ്യോമയാന പ്രതിനിധികൾക്കായി ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ശില്പശാലയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

പുനരുപയോഗ സാധ്യതയില്ലാത്ത പ്ലാസ്റ്റിക്ക് ഉല്പന്നങ്ങൾ നിരോധിക്കണമെന്ന് സ്വാതന്ത്ര്യ ദിനാഘോഷ്യ പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവശൃപ്പെട്ടിരുന്നു

അർഹരെന്ന് ക ത്തിയവർക്ക് കാലതാമസം കൂടാതെ നഷ്ടപരിഹാരം നല്കണം പുതിയ അപേക്ഷകൾ സംബന്ധിച്ച വിശദാംശങ്ങൾ ഒന്നരമാസത്തിനകം ഹൈക്കോടതിയെ അറിയിക്കണം നഷ്ടപരിഹാരം സംബന്ധിച്ച് അപ്പീൽ അനുവദിച്ചിട്ടും അത് ലഭിക്കാത്ത നിരവധി പേർ ഉ െ ന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു

പ്രധാനമന്ത്രിയുടെ നീക്കത്തിനെതിരെയുള്ള പരാതിയിൽ ഇപ്പോൾ തന്നെ പത്തു ലക്ഷത്തിലേറെ പേർ ഒപ്പിട്ടു ബ്രക്സിറ്റിനു മുന്നോടിയായി സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ അഞ്ചാഴ്ചകാലത്തേയ്ക്ക് പാർലമെന്റ് താതാകാലികമായി നിർത്തിവെയ്ക്കാനുള്ള ജോൺസൺന്റെ ആവശ്യം എലിസബത്ത് രാജ്ഞി അംഗീകരിച്ചിരുന്നു എന്നാൽ ഉടമ്പടികളില്ലാതെ ബ്രക്സിറ്റ് നടപ്പാക്കുന്നതിനെ ഈ നടപടി പ്രതികൂലമായി ബാധിക്കുമെന്ന് പ്രതിപ്ക്ഷം ആരോപിക്കുന്നു

വിഷയത്തിൽ ചർച്ച നടത്താൻ ആവശൃത്തിലേറെ സമയം ഇനിയുമുടെ ന്നും അദ്ദേഹം പറഞ്ഞു പുതിയ നിയമങ്ങൾ പാസാക്കാനാവശ്യമായ സമയം നൽകാതെ ജനങ്ങളിൽ അടിച്ചേൽപ്പിക്കാനുള്ള ഭരണകൂടത്തിന്റെ നീക്കം ബ്രിട്ടീഷ് ജനാധിപത്യത്തിനുമേലുള്ള കനത്ത പ്രഹരമാണെന്ന് ലേബർപാർട്ടി നേതാവ് ജെറെമി കോർബിൻ കുറ്റപ്പെടുത്തി നീക്കത്തെ പ്രതിരോധിക്കുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി

ചർച്ചകൾ പുനരാരംഭിക്കണമെങ്കിൽ അമേരിക്ക സാമ്പത്തിക ഭീകരത അവസാനിപ്പിക്കണം ആണവകരാറിൽ നിന്നും പിന്മാറാൻ ഏകപക്ഷീയമായി പ്രസിഡന്റ് ട്രംപ് കഴിഞ്ഞവർഷം തീരുമാനിച്ചതോടെയാണ് ഇരുരാജൃങ്ങളും തമ്മിലുള്ള ബന്ധം വഷളായത്

അമേരിക്ക ഇറാനെതിരെ സാമ്പത്തിക യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണെന്നും ഇതവസാനിപ്പിക്കാതെ പ്രശ്നം പരിഹരിക്ക്ാനികില്ലെന്നും മലേഷ്യൻ സന്ദർശനത്തിനിടെ ഇറാൻ വിദേശക്ടാര്യമുന്തി മുഹമ്മദ് ജാവേദ് സരിഫ് വൃക്തമാക്കി

തിരുവനന്തപുരം കാരൃവട്ടം സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ടോസ് നേടിയ ദക്ഷിണാഫ്രിക്ക ഇന്തൃയെ ബാറ്റിംഗിനയക്കുകയായിരുന്നു

ഇന്ത്യയ്ക്കായി യൂസ്വേന്ദ്ര ചാഹൽ അഞ്ച് വിക്കറ്റ് നേടി

പരമ്പരയിലെ അടുത്ത മത്സരം ശനിയാഴ്ച തിരുവനന്തപുരത്ത് നടക്കും

ബ്രസീലിലെ റിയോഡ്യി ജനീറോയിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ സ്വർണ്ണം നേടിയി ഇളവേണിൽ ഈ ഇനത്തിൽ സ്വർണ്ണം നേടുന്ന മൂന്നാമത്തെ ഇന്ത്യാക്കാരിയാണ്